സി മണിപ്പൂർ നെരോക്ക മത്സരം ഇന്ന് കോഴിക്കോട്ട് രുട്ട്ട്ട്ട്ട്ട്ട കേരള ബാങ്ക് രൂപീകരണത്തിന് സംസ്ഥാന ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്ന വിജ്ഞാപനം സഹക രണ രജിസ്ട്രാർ ഇന്നലെ രാത്രിയാണ് പുറത്തിറക്കിയത് ബാങ്ക് രൂപീകരണ ത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി തള്ളിയതോടെയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതോടെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ആസ്തി ബാധ്യതകൾ സംസ്ഥാന സഹകരണ ബാങ്കിന് കീഴിലായി സംസ്ഥാ ന ജില്ലാ സഹകരണ ബാങ്കുകളിലെ അഡ്മിനിസ്ട്രേറ്റർ ഭരണവും ഇല്ലാതെയായി കേരള ബാങ്കിന്റെ ഇടക്കാല ഭരണസമിതി അംഗങ്ങളായി സഹകരണ സെക്രട്ടറി മിനി ആന്റണി ധനവിഭവ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കൌശിക് സംസ്ഥാന സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ റാണി ജോർജ്ജ് എന്നിവരെ നിയമിച്ചു ഭരണസമിതി സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തുടർച്ച ഉറപ്പാക്കുകയും ജനുവരി ഒന്നിന് മുൻപ് ലയന നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും

ബാങ്ക് രൂപീകരണം സാധ്യമാക്കാൻ ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു ഡിസംബർ ആറിന് ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുദിവസത്തെ ആഘോഷ പരിപാ ടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും അന്നത്തെ സഹകാരി ബഹു ജന കൂട്ടായ്മയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്ന് കട കംപള്ളി അറിയിച്ചു ള്ള്ള്ള് സാമൂഹികക്ഷേമ പെൻഷൻ അർഹതപ്പെട്ടവർക്ക് ഉറപ്പാക്കാനും പെൻ ഷൻ തുക വർദ്ധിപ്പിക്കാനുമാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി എ

പാലക്കാട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഐ

ഒ പ്രഖ്യാപനവും ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പെൻഷൻകാരായ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് വീട്ടിലെത്തി നടത്തുമെന്നും ശാരീരിക അവ ശത നേരിടുന്നവർക്ക് അക്ഷയകേന്ദ്രങ്ങളിലെ താഴെ നിലയിൽ സൌകര്യമൊ രുക്കുമെന്നും മന്ത്രി പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട കവി അക്കിത്തത്തിന് ജ്ഞാനപീഠം ലഭിച്ചതിൽ വലിയ സന്തോഷമു ണ്ടെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻനായർ കോഴിക്കോ ട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ജ്ഞാനപീഠ പട്ടികയിൽ നേരത്തെ കേൾക്കാൻ ആഗ്രഹിച്ച പേരാണ് അദ്ദേഹത്തിന്റേത് അക്കിത്തം എഴുതിയതെല്ലാം എണ്ണ പ്പെട്ട കൃതികളാണെന്നും എം ടി അഭിപ്രായപ്പെട്ടു അക്കിത്തം ആധുനികത യും പാരമ്പര്യവും സമന്വയിപ്പിച്ച മഹാകവിയാണെന്ന് നിയമസഭാ സ്പീ ക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ജ്ഞാനപീഠം അവാർഡിനർഹനായ മ ഹാകവി അക്കിത്തത്തെ കുമരനെല്ലൂരിലെ വീട്ടിലെത്തി ആദരിച്ച ശേഷം സം സാരിക്കുകയായിരുന്നു അദ്ദേഹം ആത്മീയ ദർശനത്തിൽ വിമോചന മൂല്യ ങ്ങൾ അന്വേഷിക്കുന്ന രീതിയാണ് അക്കിത്തം കവിതകളിൽ സ്വീകരിച്ചത് മ ലയാള കവിതയിൽ ആധുനികത മുറുകെ പിടിച്ച കവികളിൽ മുന്നിൽ നിൽ ക്കുന്നത് അക്കിത്തമാണെന്നും സ്പീക്കർ പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡ റ്റുകളുടെ പാസിംഗ്ഔട്ട് പരേഡ് രാവിലെ നടക്കും അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി അഡ്മി റൽ കരംബീർ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും

എസ് ശ്രീ ധരൻപിള്ള ഇന്ന് കേരളത്തിലെത്തും ഉച്ചക്ക് കരിപ്പൂർ വിമാനത്താവളത്തി ലെത്തുന്ന അദ്ദേഹത്തെ സ്വാഗതസംഘം ഭാരവാഹികൾ സ്വീകരിക്കും തു ടർന്ന് വൈകീട്ട് കോഴിക്കോട് ടൌൺഹാളിൽ സ്വീകരണ പരിപാടിയും സംഘ ടിപ്പിച്ചിട്ടുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട സർവജന വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി സ്കൂൾ അഞ്ചാംക്ലാസ്സ് വിദ്യാർത്ഥി ഷഹല ഷെറിൻ ക്ലാസ്സ് മുറിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവ ത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങി ചെ യർമാൻ പി

സുൽത്താൻ ബത്തേരി റസ്റ്റ് ഹൌസിലെ തെളിവെടുപ്പിന്റെ ആദ്യദിനത്തിൽ സ്കൂൾ അ ദ്ധ്യാപകർ ഡോക്ടർമാർ ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞ ദിവസം കമ്മീഷൻ കുട്ടിയുടെ വീട്ടിലും വിദ്യാലയത്തിലും എത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു തെളിവെടുപ്പ് ഇന്നും തുടരും

തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ ഉച്ചയ്ക്ക് ശേഷം മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ടിക്കറ്റ് പ്രകാശനം ചെയ്യും

ആവശൃമായത്ര ടാഗുകൾ ലഭൃമാകാത്തതും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തിയ്യതി നീട്ടിയതെന്ന് ഗതാ ഗത മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

ചൊവ്വാഴ്ച ക്കകം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനായിരുന്നു ഗ്വർണർ നൽകിയ നിർദ്ദേശം സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നുണ്ടായേക്കും ദർശ്ശക്ക സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി എ കെ ബാലന്റെ അധ്യക്ഷതയിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും സിനിമാ ടിക്കറ്റിന്റെ അധിക നികുതി ലൊക്കേഷനുകളിലെ ലഹരിമരുന്ന് ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾ സിനിമാരംഗത്തെ സംഘടനകളുമായി മന്ത്രി ചർച്ച ചെയ്യും

രുവെട്ടെടു ഐ ലീഗ് ഫുട്ബാൾ മത്സരത്തിൽ ഇന്ന് ആതിഥേയരായ ഗോകുലം കേരള എഫ് സി മണിപ്പൂർ നെരോക്ക എഫ്

വൈകീട്ട് ഏഴി ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കിക്കോഫ് വനിതകൾ ക്ക് സൌജന്യമായി കളികാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്

എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി ബംഗളുരു എഫ് സി മത്സരം ഇരുടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിൽ വൈകീട്ട് എ

കെ മുംബൈ സിറ്റിയെ നേരിടും

ആദ്യ മത്സരത്തിൽ കേരളം കർണാടകയെ നേരിടും

സി മൊയ്തീൻ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാ ടികളിൽ പങ്കെടുക്കും

തുടർന്ന് പടനി ലം ജി

പി സ്കൂളിന്റെ പുതിയ കെട്ടിടവും അദ്ദേഹം നാടിന് സമർപ്പിക്കും

വൈകീട്ട് രാമനാട്ടുകര പി എം

വൈ ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോലുകൾ മന്ത്രി കൈമാറും

പൊതുജനങ്ങളുടെ പരാതി കൾ അദാലത്തിൽ പരിഹരിക്കും രുട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ പഴശ്ശി ദിനാചരണവും ചരിത്ര സെ മിനാറും അനുസ്മരണ സമ്മേളനവും രാവിലെ മാനന്തവാടി പഴശ്ശി കുടീര ത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും രുട്ട്ട്ട്ട്ട്ട്ട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരള ത്തിന്റെ വേതന കുടിശിക ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉറപ്പുനൽകിയതായി ഡീൻ കുര്യാക്കോസ് എം പി അറിയിച്ചു

ഈ ആവശ്യം ഡീൻ കുര്യാക്കോസ് മന്ത്രിയുടെ ശ്രദ്ധയിൽപെടുത്തിയിരുന്നു രുട്ട്ട്ട്ട്ട്ട്ട ട ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കൊട്ടാരക്കര നഗരത്തിൽ ഫ്ളൈ ഓ വർ നിർമിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മന്ത്രി ജി സുധാകരൻ കൊ ല്ലത്ത് പറഞ്ഞു

മറ്റ് നട പടിക്രമങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും താഴത്ത് കുളക്കടയിൽ പാലത്തിന്റെയും റോഡിന്റെയും നിർമാണം ഉദ്ഘാടനം ചെയ്യുകയായിരു ന്നു മന്ത്രി രുട്ട്ട്ട്ട്ട്ട്ട പാലക്കാട് ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ കേരള സാഹി തൃ അക്കാദമിയുടെ കുഞ്ചൻ സാഹിത്യോത്സവം രാവിലെ ആരംഭിക്കും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാട്ടനം ചെയ്യും

പെരിഞ്ഞനത്ത് ആലുവ സ്വദേശികളായ ശ്രീമോൻ ദിൽജിത്ത് എന്നിവരാണ് മരിച്ചത് വാണി യംപാറയിൽ കാർ കുളത്തിലേക്ക് മറിഞ്ഞ് ആലുവ സ്വദേശി ഷീല മരിച്ചു ഭർത്താവ് ജോർജ്ജിനായി തെരച്ചിൽ തുടരുകയാണ് ദർശ്ശേര കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കൽ ഇന്ന് കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹാജരാകും കേസ് പരിഗണിച്ചിരുന്ന പാലാ കോടതിയിൽ നിന്ന് കേസ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു ദർവ്വെട്ടര മലപ്പുറം ജില്ലയിൽ ഉരുൾപൊട്ടലിലും പ്രളയത്തിലും വീടും സ്ഥലവും പൂർണമായി നഷ്ടപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ തുകയുടെ ആദ്യഘട്ടം അടു ത്തയാഴ്ച വിതരണം ചെയ്യുമെന്ന് ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി വി വേണു അറിയിച്ചു പ്രളയനാശം ബാധിച്ച മുണ്ടക്കടവ് വാണിയപ്പുഴ ആദി വാസി കോളനികൾ നേരിൽകണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു വി വേണു

ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ദിലീപ് ഒഴികെ പ്രതികൾ ഇന്ന് ഹാജരാകണം ദിലീപ് വിദേശത്തായതിനാൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്